രാജ്യമെങ്ങും വിപുലമായ പൃരിപ്പ്ട്ടികളോടെ ആറാമത് അന്താരാഷ്ട്ര യോഗാദിനം ആഘോഷിച്ചു

പ്രദേശങ്ങൾ നടത്ത്ുന്ന പരിശ്രമങ്ങളെ കേന്ദ്രം അഭിനന്ദിച്ചു

പേർക്ക് രോഗമുക്തി

ലഡാക്കിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു

കര്യ് നാവിക്ക വ്യോമ അതിർത്തികളിലുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ ് ഇന്ത്യൻ സൈനൃത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നീട് ് ഉറപ്പു വരുത്തണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് യോഗ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു വർഗ്ഗ വർണ്ണ ലിംഗ ഭേദങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രാഷ്ട്രഭേദങ്ങൾക്കും അപ്പുറത്താണ് യോഗയെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് കാലത്ത് യോഗ ശീലമാക്കണന്നും പ്രധാന മന്ത്രി യോഗ ദിന സന്ദേശത്തിൽ പറഞ്ഞു

കൂടുതൽ പേർ യോഗയിലേക്ക് ആകൃഷ്ടരാകുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

തമാംഗ് ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ആർ

യോഗ വീടുകളിൽ കുടുംബത്തോടൊപ്പം എന്ന യോഗാദിന പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പേർ വീടുകളിൽ യോഗ ചെയ്തു അതിർത്തി ഗ്രാമങ്ങളായ ദർബുക് ചുഷു തുടങ്ങിയിടങ്ങളിൽ വിദ്യാർത്ഥികളും ഗ്രാമവാസികളും സൈനികരുമടക്കം യോഗാദിനമാചരിച്ചു

കൊളംബോയിലെ ശ്രീലങ്കൻ സേനാ ആസ്ഥാനത്ത് ഇന്ത്യൻ ഹൈക്കമീഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ കരസേനാ മേധാവി ലഫ് ജനറൽ ഷാവേന്ദ്ര സിൽവ ഇന്ത്യൻ ഹൈക്കമീഷണർ ഗോപാൽ ബാഗ്ലേ തുടങ്ങിയവർ പങ്കെടുത്തു

ഇതിന്റെ ഭാഗമായി വിവിധ മാർഗ്ഗ നിർദ്ദേശങ്ങൾ ചികിത്സാ മാനദണ്ഡങ്ങൾ എന്നിവ സംസ്ഥാനങ്ങളുമായി കേന്ദ്രം പങ്കു വച്ചിട്ടുണ്ട് മിക്കവാറും സംസ്ഥാനങ്ങൾ ഈ നിയന്ത്രണ തന്ത്രങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും ഗണ്യമായ പുരോഗതി നേടുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര സർക്കാരും ഗ്രേറ്റർ മുംബൈ മുൻസിപ്പൽ കോർപ്പറേഷനും കോവിഡ് പ്രതിരോധത്തിൽ സ്വീകരിച്ച നടപടികൾ പ്രോത്സാഹജനകമായ ഫലങ്ങൾ നൽകിയിട്ടുണ്ട് കോവിഡ് ബാധ സംശയിക്കുന്നവരിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രോഗ വൃാപന നിരക്ക് ഗണ്യമായി കുറയ്ക്കാനും ഗ്രേറ്റർ മുബൈ മുൻസിപ്പൽ കോർപ്പറേഷന്റെ തീവ്രമായ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്

കോവിഡ് വ്യാപനം തുടങ്ങിയതിന് ശ്ശേഷം ഒരു ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്